കേരളത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മൂന്നുനാൾ മാത്രം

ഇരട്ട വോട്ടിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥലോബിയെന്ന് രമേശ് ചെന്നിത്തല

മൂന്നാം ഘട്ട വാക്സിനേഷനും തുടക്കമായി

ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ മഞ്ചേശ്വരത്തും കോഴിക്കോടും നാളെ നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കും

ഡി എഫിന്റെ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എം പി കേരളത്തിലെത്തി സി പി എം പി ബി അംഗം പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും പ്രചാരണയോഗങ്ങളിൽ സജീവമാണ്

നദ്ദ കൊല്ലം ദേശീയപാത വികസനം പോലെ ക്യേന്ദു ് നടപ്പാക്കുന്ന സുപ്രധാന അടിസ്ഥാന സൌകര്യവികസന പ്പദ്ധതികൾക്ക് ് സ്ഥലം ഏറ്റെടുത്തു നൽകാൻ പോലും കേരള സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് ബി ജെ

നഡ്ഡ കൊല്ലത്ത് പറഞ്ഞു

വയനാട്ടിലെ യൂ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്

പ്രശ്നപരിഹാരത്തിന് യു ഡി ഫ് അധികാരത്തിൽ വരണമെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു

ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഇത്തരം ഭീഷണി വിലപ്പോവില്ലെന്നും ശ്രീ പ്രകാശ് കാരാട്ട് കോഴിക്കോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ എത്തി വികസനത്തെകുറിച്ച് പറയാതെ തെറ്റിദ്ധാരണകൾ പരത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജില്ലയെ ചുവപ്പിച്ചു തന്നെ നിർത്താൻ എൽ ഡി എഫും കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ട് യു ഡി എഫും ഇരു മുന്നണികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തി എൻ

എ യും മത്സരം കൂടുപ്പിക്കുമ്പോൾ ജില്ലയുടെ ചിത്രം മാറി മറിയുകയാണ് ജില്ലയിലെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ആലുവ മണ്ഡലം എൻ

എ സ്ഥാനാർഥി എം എം ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ സ്ട്രഗൾ ചെയ്യുമ്പോൾ സർക്കാർ സ്മഗളിങ് നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

ഇരട്ട വോട്ടിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയെന്നും സർക്കാരിനെതിരായ ജനവികാരത്തെ വ്യാജ വോട്ടുകളുടെ മറവിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ

പി മുഖ്യമന്ത്രി കേരളത്തെ കമ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സും അഴിമതിയുടെ കേന്ദ്രമാക്കിയിരിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശ്വാസ സംരക്ഷണമല്ല മറിച്ച് വിശ്വാസ വഞ്ചനയാ ണ് നടക്കുന്നതെന്നും ഹരിപ്പാട് നടന്ന എൻ

എ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു ഇടതുവലതു മുന്നണികൾ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തെന്നും യോഗി ആദിത്യനാഥ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പറഞ്ഞു അടൂരിലും കഴക്കൂട്ടത്തും നടന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു

ചാക്കോ ഭരണത്തുടർച്ച ഉണ്ടായാൽ കേരളം വീണ്ടും കൊലക്കളമാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി ഇടതുപക്ഷം ചെയ്ത തെറ്റായ കാര്യങ്ങൾക്കുള്ള അംഗീകാരമായി അതു മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ രാഷ്ട്രീയകൊലപാതകങ്ങളെക്കുറിച്ച് പി ടി ചാക്കോ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ നാട്ടിലെ ചോരക്കളികൾ എന്ന ഡോക്യുമെന്ററി കണ്ണൂർ ബോംബ് സ് ഫോടനത്തിൽ പരിക്കേറ്റ പൂർണചന്ദ്രന് നല്കി പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരന്നു അദ്ദേഹം

തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപാറുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഗോത്ര വർഗ്ഗ പഞ്ചായത്തായ ഇടമലകുടിയിലേക്ക് സ്ഥാന്റാർത്ഥികളാരും എത്തിയില്ല

നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അവരവർക്ക് വോട്ടുളള മണ്ഡലങ്ങളിലെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലെത്തി പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താം

അന്യ ജില്ലയിൽ വോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് തപാൽ വഴിയായിരിക്കും

ക്ട് കി എം എ കണ്ണൂർ കളക്ടർ കണ്ണൂർ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളും പൊതുമേഖല സ്ഥാപനങ്ങളും ബാങ്കുകളും നാളെയും മറ്റന്നാളും തുറന്ന് പ്രവർത്തിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നിയമന ഉത്തരവ് വിതരണം ചെയ്യുന്നതിനാണ് ഇത് തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസ് മേധാവികൾക്കെതിരേ നിയമനടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി

ആത്മാർപ്പണത്തോടെ തന്നെ ശുശ്രൂഷിച്ചവർക്ക് അദ്ദേഹം ട്ടിറ്ററിൽ നന്ദി അറിയിച്ചു എല്ലാവരോടും നന്ദി പറയാൻ വാക്കുകളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തിരക്ക് ഒഴിവാക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് വാക് സിനെടുക്കാൻ എത്തുന്ന്താണ് അഭികാമൃം

കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനാണിത് പ്രതിരോധ കുത്തിവെയ്പ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കേന്ദ്ര ഉന്നത തലസംഘം കൃതൃമായി വിലയിരുത്തുന്നുണ്ട്

തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കേരളത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യ ഷീജ ജോയ്ക്കൊപ്പമാണ് അദ്ദേഹം കോവാക്സിൻ എടുത്തത്

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജ്യാവദേക്കറാണ് അവാർഡ് പ്രഖ്യാപിച്ചത്

ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സംഭാപിനുകൾക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഫാൽക്കെ പുരസ്കാരം നേടിയു ശ്രീ

വളരെ വ്യത്യസ്തമായ അഭിനയ പാടവം കാഴ്ച വയ്ക്കുന്ന രജനി സ്നേഹ സമ്പന്നവും ലളിതവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

പെസഹായോട് അനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു

സംസ്ഥാനത്ത് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ദേവാലയങ്ങളിൽ മത മേലധൃക്ഷന്മാർ ഉൾപ്പടെ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭാ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ്ജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിച്ചു വിശ്വാസികളുടെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും അദ്ദേഹം നേതൃത്വം നടത്തി സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ നടന്ന പെസഹാ ചടങ്ങുകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപറമ്പിൽ നേതൃത്വം നൽകി തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ്സ് മെട്രോപോളിറ്റൻ കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപതാ ബിഷപ്പ് ഡോ

കോവിഡ്ന്റെ പ്രതികൂലമായ സാഹചരൃത്തിലും ഈ സാമ്പത്തിക വർഷത്തിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ വകുപ്പിന് കഴി ഞ്ഞതായി മന്ത്രി ജി

സ്വർണ വിലയിൽ വർദ്ധന